നിരവധി പേർക്ക് പരിക്കേറ്റു മരണ സംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് തദ്ദേശസ്ഥാപനങ്ങൾ വഴി ഈ വർഷം ഇരുപ ത്തിയോരായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി എ

മൊയ്തീൻ

സമഗ്ര പ്ലാന്റേഷൻ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി

തൃശൂരിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ മെഡി ക്കൽ ബോർഡ് ഇന്ന് തീരുമാനമെടുക്കും

ൾ ൽ ൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിനടുത്ത് അവിനാശിയിൽ കെഎസ് ആർടിസി വോൾവോ ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് പേർ മരിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു ബെങ്കലൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായി രുന്ന ബസാണ് അപകടത്തിൽ പെട്ടത് അർദ്ധരാത്രിക്ക് ശേഷമായി രുന്നു അപകടം മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മരണ സംഖ്യ ഉയ രാൻ സാധൃതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബസിലെ യാത്രക്കാരിൽ കൂടുതൽ പേരും മലയാളികളായിരു ന്നു വെ ന്നാണ് വിവ രം പാലക്കാട്ട് നിന്ന് കെഎസ്ആർടിസി അധികൃതർ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് സംസ്ഥാനത്ത് ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇരുപ ത്തിയോരായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നട പ്പാക്കുമെന്ന് മന്ത്രി എ

മൊയ്തീൻ അറിയിച്ചു സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ സമാപന പ്രതിനിധി സമ്മേളനം വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം

പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇട പെടലുകൾ വർദ്ധിപ്പിക്കണമെന്നും എ

മൊയ്തീൻ നിർദേശിച്ചു ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വരാജ് ട്രോഫികൾ വിതരണം ചെയ്തു മഹാത്മാ പുരസ്കാരങ്ങൾ അടുത്ത മാസം തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് നിയ മന ഉത്തരവ് നൽകും മികച്ച പ്രകടനം നടത്തിയ കായിക താരങ്ങ ളുടെ മുടങ്ങിക്കിടന്ന നിയമനമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് സെക്രട്ടറിയേറ്റിലും വിദ്യാഭ്യാസ വകുപ്പിലുമാണ് കൂടുതൽ പേർക്കും നിയമനം

ജയരാജൻ തിരുവന ന്തപുരത്ത് പറഞ്ഞു

തോട്ടം മേഖലയുടെ പ്രതാപം വീണ്ടെടു ക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഉൽപ്പന്ന വൈവിധ്യ വൽക്കരണത്തിനും ഊന്നൽ നൽകിയായിരിക്കും നയമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കൊല്ലം കുളത്തൂപുഴ ആർപിഎൽ എസ്റ്റേറ്റിൽ തൊഴിലാളി ഭവന പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ ഐടിഐകളിൽ ഒന്ന് കുളത്തൂ പുഴ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

അമിത ജല ചൂഷണം കാലാവസ്ഥാ വൃതിയാനം എന്നിവ മൂലം കടലോര ഭൂഗർഭ ജല മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്

തദ്ദേശ സ്ഥാപനങ്ങളിലും ഡപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ ഓഫീസുകളിൽ ഹെൽപ് ഡെസ്കും ആരംഭിക്കും

ട്രസ്റ്റിന്റെ കീഴിൽ ക്ഷേത്ര നിർമ്മാണ കമ്മറ്റിയുടെ മേധാവിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്രമിശ്രയെ നിയോഗിച്ചു ക്ഷേത്ര നിർമ്മാണ തീയതി ട്രസ്റ്റിന്റെ അടുത്ത യോഗത്തിൽ അന്തിമമായി തീരു മാനിക്കും

സംവിധായകൻ ശങ്കർ അടക്കം ഒമ്പത് പേർക്ക് പരിക്കേറ്റു

മരിച്ചവരിൽ മൂന്ന് പേർ സഹസം വിധായകരാണെന്നാണ് റിപ്പോർട്ട്

ഇന്നലെ രാത്രി പൂനമല്ലിയിലെ സ്ഥകാര്യ സ്റ്റൂഡി യോയിലായിരുന്നു അപകടം തൃശൂരിൽ കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെ പറ്റി ്തീരുമാനമെടു ക്കാൻ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും തുടർച്ചയായി രണ്ട് സാമ്പിളുകളിൽ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് തീരുമാനം

ചൈനയിൽ നിന്ന് ഡൽഹിയിലെത്തി നിരീ ക്ഷണത്തിലായിരുന്ന ആറ് പേർ ജില്ലയിൽ എത്തിയിട്ടുണ്ട്

അതിനിടെ കൊറോണ വൈറസ് ബാധിച്ച് ഇറാനിൽ രണ്ട് പേർ മരിച്ചു

ഇറാനിലെ ആദ്യ കൊറോണ വൈറസ് ബാധയാണിത്

കായികതാരങ്ങൾക്ക് ആവ ശൃമായ വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ പ്രദർശന ത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു

ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യൻ സമയം ഉച്ചക്ക് ഒന്നരയ്ക്കാണ് കളി അടുത്ത മാസം മൂന്ന് വരെയാണ് ഗ്രൂപ്പ് മത്സരങ്ങൾ മാർച്ച് അഞ്ചിന് സെമിയും എട്ടിന് ഫൈനലും നടക്കും

ജംഷഡ്പൂർ എഫ്സിയെ മറുപടിയില്ലാത്ത അഞ്ച് ഗോളിനാണ് ഗോവ തോൽപ്പിച്ചത്

ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റ ഡ് ഹൈദരാബാദ് എഫ്സിയെ നേരിടും

ഐസി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ഇന്ത്യ ന്യൂസി ലാന്റ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്ക്മാകും ഇന്ത്യൻ സമയം രാവിലെ നാലു മുതൽ വെല്ലിങ്ടണിലാണ് മത്സരം

തൃശൂർ ജില്ലയിലെ കോൾ ബണ്ടുകളിൽ തെങ്ങ് നട്ടുപിടിപ്പിക്കുന്ന പദ്ധ തിയും ജീവനി പദ്ധതിയും മന്തി വി

സു നിൽകുമാർ രാവിലെ ഉദ്ഘാടനം ചെയ്യും പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി

വാഹനങ്ങളെ ഹർത്താ ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ജില്ലാ കലക്ടർ എച്ച് ദിനേശനാണ് അദാലത്തിന് നേതൃത്വം നൽകുന്നത് ചാലക്കുടി മേലൂരിൽ വിദ്യാർത്ഥിക്ക് വെയിൽചൂടിൽ പൊള്ളലേ റ്റു

പണിപൂർത്തിയാകാത്ത വീടിന്റെ കിടപ്പുമുറിയിൽ നിന്ന് ഗ്രോബാ ഗുകളിൽ കൃഷി ചെയ്തിരുന്ന കഞ്ചാവ് ചെടികൾ കട്ടപ്പന എക്സൈസ് സംഘം കണ്ടെടുത്തു കട്ടപ്പന സ്വദേശി മനു തോമ സിനെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ തയ്യിലിൽ ഒന്നര വയസുകാരനായ മകനെ കൊലപ്പെടു ത്തിയ കേസിൽ അമ്മ ശരണ്യയെ കോടതി റിമാന്റ് ചെയ്തു വീടി നടുത്ത് കടൽഭിത്തിക്ക് സമീപമാണ് കുട്ടിയെ മരിച്ച് നിലയിൽ കണ്ടെ ത്തിയത്